ചാവക്കാട് നൌഷാദ് കൊലകേസിൽ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റു ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബില്ലിനെതിരെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ രാജ്യവ്യാപക പഠിപ്പ് മുടക്ക് തുടങ്ങി

ൾ ൽ ൾ കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ സിബിഐ അന്വേഷണം വേണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്ത രവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി സിബിഐ അന്വേഷണം ആവ ശൃമില്ലെന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ അപ്പീൽ പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്ത രവ്

വിധി സ്വാഗതാർഹമാണെന്നും കേരളാ പൊലീസിന്റെ അന്വേ ഷണ മികവിന് ലഭിച്ച അംഗീകാരമാണ് ഉത്തരവെന്നും ഡി ജി പി ലോക്നാഥ് ബെഹ്റ മാധ്യമങ്ങളോട് പറഞ്ഞു

സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കിയ ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനത്തിനെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകുമെ ന്ന് ഷുഹൈബിന്റെ പിതാവ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഉന്നാവ് പീഡന കേസിലെ പെൺകുട്ടിയെ ഡൽഹിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ അവരുടെ കുടുംബ ത്തിന് സ്വതന്ത്രമായ തീരുമാനമെടുക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി പെൺകുട്ടിയെ തിരിച്ചറിയുന്ന തരത്തിൽ മാധ്യമ ങ്ങൾ നേരിട്ടോ അല്ലാതെയോ വാർത്തകൾ നൽകരുതെന്നും സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് നിർദേശിച്ചു പെൺകുട്ടി യുടെ അമ്മാവനെ റായ്ബറേലി ജയിലിൽ നിന്ന് തിഹാറിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ വാദം തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയതായും കോടതി അറിയിച്ചു ഗുരുതരമായി പരിക്കേറ്റ് ലഖ്നൌ മെഡിക്കൽ കോളെജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന പെൺകുട്ടിയെ ഡൽഹി എയിംസി ലേക്ക് മാറ്റാമെന്ന് നേരത്തെ കോടതി അറിയിച്ചിരുന്നു ഉന്നാവ് ബലാത്സംഗ കേസിൽ സുപ്രീംകോടതിയുടെ ഇടപെ ടൽ ഉത്തർപ്രദേശിലെ കാടൻ ഭരണത്തിന്റെ പരാജയമാണ് കാണി ക്കുന്നതെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി ടിറ്ററിൽ കുറിച്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ തടവിൽ കഴിയുന്ന കുൽദീപ് സിംഗ് സെൻഗാർ എം എൽ എയെ സംര ക്ഷിച്ച ബി ജെ പിയ്ക്ക് ഒടുവിൽ തെറ്റു മനസില്പാക്കി അയാളെ പുറത്താക്കേണ്ടി വന്നെന്നും പ്രിയങ്ക അഭിപ്രായപ്പെട്ടു ഉന്നാവ് പെൺകുട്ടിക്ക് വാഹനപ്കടത്തിൽ ഗുരുതരമായി പരി ക്കേറ്റ സംഭവത്തിൽ ഒരാഴ്ചക്കകം കേസന്വേഷണം പൂർത്തീക രിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു കൂടാതെ സംഭവവു മായി ബന്ധപ്പെട്ട അഞ്ച് കേസുകളും ഡൽഹിയിലേക്ക് മാറ്റാനും കോടതി നിർദേശിച്ചിരുന്നു ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ നൌഷാദിനെ മൃഗീയ മായി കൊലപ്പെടുത്തിയ എസ് ഡി പി ഐക്കാരായ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റു ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു മഹാരാജാസ് കോളെജിലെ അഭിമന്യുവിനെ കൊല ചെയ്ത മുഖ്യപ്രതികളെ അറസ്റ്റു ചെയ്യാൻ പൊലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും എസ് ഡി പി ഐയോട് മൃദുസമീപനം സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഇതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

ഇവരെയെല്ലാം ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരു ന്നതിന് സംസ്ഥാന ഗവ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു ന്ന ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകന്റെ കൊലപാതക വുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് ഘടകക്ഷി നേതാക്കൾ നിലപാട് വൃക്തമാക്കണമെന്ന് ഡി വൈ എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീം കോഴിക്കോട് ആവശ്യപ്പെട്ടു സാമൂഹൃമാധൃമങ്ങളിൽ ചർച്ചയായപ്പോഴാണ് കോൺഗ്രസ് നേതൃത്വം പോലും പ്രതികരിച്ചതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഓർത്ത ഡോക്സ് യാക്കോ ബായ സഭാ തർക്ക വിഷയത്തിലെ റിട്ട് ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ആരാധനാ സ്വാതന്ത്രൃത്തിന് പുറമെ സെമിത്തേരിയിൽ മൃതദേഹം അടക്കം ചെയ്യാൻ അവകാശമുണ്ടെന്ന് കാട്ടി യാക്കോബായ വിശ്വാസികൾ നൽകിയ റിട്ട് ഹർജിയാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഢ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുന്നത് കേസിൽ കക്ഷി ചേരാൻ യാക്കോബായ സമുദായക്കാരനായ മറ്റൊരാളും അഭിഭാഷകൻ മുഖേന സുപ്രീംകോടതിയെ സമീപി ച്ചിട്ടുണ്ട് രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച തനിക്ക് സ്വന്തം പിതാവിന്റെ മൃതദേഹം വിശ്വാസ പ്രകാരം സംസ്കരിക്കാൻ സാധിച്ചില്ലെന്ന വിഷയമാണ് ഹർജിക്കാരൻ ഉന്നയിക്കുന്നത് മലങ്കര സഭാ തർക്കത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നതിന്നുള്ള തന്ത്രമാണ് സമവായ ചർച്ചയെന്ന് ഓർത്തഡോക്സ് വിഭാഗം ആരോപിച്ചു ചർച്ചകൾ അവസാനിപ്പിച്ച് വിധി നടപ്പാക്കാൻ തയാറായില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സഭാനേതൃത്വം കോട്ടയത്ത് പറഞ്ഞു രാജ്യസഭ പാസാക്കിയ ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബില്ലി നെതിരെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ രാജ്യ വ്യാപക പഠിപ്പുമുടക്ക് ആരംഭിച്ചു മുറിവൈദ്യത്തെയും വ്യാജ ചികിത്സ യെയും പ്രോത്സാഹിപ്പിക്കാൻ ബിൽ ഇടവരുത്തും എന്നാരോപി ച്ചാണ് സമരം കോഴിക്കോട് മെഡിക്കൽ കോളെജിലെ വിദ്യാർത്ഥികളും ബില്ലിനെതിരെ ഐ എം എയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ക്സാസ് ബഹിഷ്കരിച്ചു

കഴിഞ്ഞ ദിവസം രാജ്യസഭ ബില്ലിന് അംഗീകാരം നൽകിയിരുന്നു നില വിൽ കടബാധ്യത തീർക്കാൻ വൃക്തികൾക്കോ കമ്പനികൾക്കോ കഴിയാത്ത സാഹചര്യമാണ് പാപ്പരത്തമെന്ന് ബിൽ നിർവചിക്കു ന്നു

കമ്പനികൾ പൂട്ടുകയല്ല ബില്ലിന്റെ അജണ്ടയെന്ന് ധനമന്ത്രി നിർമലാ സീതാരാമൻ പറഞ്ഞു

ആളപായം ഉണ്ടായതായി റിപ്പോർട്ടില്ല

എൻഡി ടിവിയുടെ എക്സിക്യൂട്ടിവ് എഡിറ്ററും പ്രമുഖ അവതാരകനുമാണ് ബീഹാർ സ്വദേശിയായ രവീഷ് കുമാർ

സമകാലിക സാമൂഹ്യ വിഷ യങ്ങളിൽ ഗൌരവതരമായ പഠന ഗവേഷണങ്ങൾ നടത്തിയാണ് രവീഷ് കുമാർ അവാർഡിന് അർഹമായ പ്രൈം ടൈം എന്ന പരിപാടി അവതരിപ്പിക്കുന്നത്

സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തിരുവനന്ത പുരം എം എൻ സ്മാരകത്തിൽ തുടങ്ങി എറണാകുളത്ത് ഡി ഐ ജി ഓഫീസ് മാർച്ചിനിടെ എൽദോ എബ്രഹാം എം എൽ എ ഉൾപ്പെടെ നേതാക്കൾക്ക് പൊലീസ് മർദ്ദനമേറ്റ സംഭവം യോഗത്തിൽ ചർച്ചയായേക്കും

പൊതുസമ്മേളനം വൈകീട്ട് ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡണ്ടും സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ കനയ്യകുമാർ ഉദ്ഘാടനം ചെയ്യും സമ്മേളനം ഞായറാഴ്ച സമാപിക്കും

രണ്ട് ഏകദിന മത്സരങ്ങളും സെൻട്രൽ ബ്രൊവാർഡ് സ്റ്റേഡിയത്തിലാണ്

ലോകകപ്പ് ക്രിക്കറ്റിന് ശേഷം ആദ്യ മായാണ് ടീം ഇന്ത്യ ജയം തേടി കളിക്കാനിറങ്ങുന്നത്

ഡ്യൂറന്റ് കപ്പിൽ കളിക്കാൻ ഒരുങ്ങുന്ന ഐ ലീഗ് ടീമായ കേരള എഫ് സി രണ്ട്ഗോൾകീപ്പർമാരുമായി കരാറിൽ ഒപ്പിട്ടു ഈസ്റ്റ്ബംഗാളിന്റെ മലയാളി ഗോൾകീപ്പർ സി കെ ഉബൈദ് ചെന്നൈയിൻ സിറ്റി എഫ് സി താരം പ്രവിഘ്നേശ്വരൻ എന്നിവരാണ് കേരള എഫ് സിയുടെ വല് കാക്കാൻ നിയോഗികപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലാ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി

പാലക്കാട് കല്ലേക്കാട് എ

കൃാമ്പിലെ സിപിൽ പൊലീസ് ഓഫീസർ കുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പട്ടികജാതി പട്ടിക് വർഗ്ഗ കമ്മീഷൻ ഉച്ചക്ക് ക്യാമ്പിലെത്തി തെളിവെടുപ്പ് നടത്തും പൊലീസ് ക്യാമ്പിൽ കുമാറിന് നേരെ ജാതീയമായ് അധിക്ഷേപമോ മർദ്ധനമോ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് തെളിവെടുപ്പ് ഇതിനിടെ മരണത്തിന് ഉത്തരവാദികളായ വർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുമാറിന്റെ ഭാര്യ സജിനി ജില്ലാ പൊലീസ് മേധാവിക്ക് പരാതി നൽകി അട്ടപ്പാടി കുന്നംചാള ഊരിലെ കുമാറിനെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ലക്കിടി റയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോഴിക്കോട് ഓമശ്ശേരിയിൽ ജല്ലറിയിൽ തോക്ക് ചൂണ്ടിചൂണ്ടി കവർച്ച നടത്താൻ ശ്രമിച്ച മൂന്നംഗ സംഘത്തിലെ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു

ബംഗാളിലെ ബറാസത്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ട്രാൻസിസ്റ്റ് വാറണ്ടുമായി ഇന്നലെ കേരളത്തിലെത്തിച്ചു സംഭവത്തിൽ ബംഗ്ലാദേശ് സ്വദേശിയായ നഈ അലിഖാനെ നേരത്തെ പിടികൂടിയിരുന്നു സംഘത്തിലെ മൂന്നാമത്തെയാൾ ബംഗ്ലാദ്ദേശ് അതിർത്തി കടന്നതായി അനേഷണസംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്

പ്രതിയെ പിടികൂടുന്നതിന് ഇന്റർപോളിന്റെ സഹായം തേടാനും തീരുമാനിച്ചതായി റൂറൽ എസ് പി കെ ജി സൈമൺ കൊടുവള്ളിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

സംസ്കാരം നാളെ രാവിലെ കോട്ടയത്ത് നടത്തും നാടകപ്രവർത്തകനും പുസ്തക പ്രസാധകനും എഴുത്തുകാ രനുമായ വിജയൻ കുന്നുമ്മക്കര വടകരയിൽ അന്തരിച്ചു

കുട്ടികൾക്കായി നിരവധി പുസ്തകങ്ങൾ എഴുതി യിട്ടുണ്ട് ഉപസംഹാരം പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല തുടങ്ങിയ നാടകങ്ങൾ സംസ്ഥാനതലത്തിൽ അവാർഡുകൾ നേടിയിട്ടുണ്ട് സംസ്കാരം ഉച്ച കഴിഞ്ഞ് മൂന്നിന് കുന്നുമ്മക്കരയിൽ

കെ ബി ഗണേഷ് കുമാർ അധ്യക്ഷനായ സമിതി കൂട്ടപ്പാറ സാംസ്കാരിക നിലയത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് പരാതികളും സ്വീകരിച്ചു നീതിക്കൊപ്പം നിലകൊള്ളുമെന്ന് സമിതി അധ്യക്ഷൻ അറിയിച്ചു ക്യൂബൻ ജനത ഇപ്പോഴും പലതരം ഉപരോധങ്ങളും സഹി ച്ചാണ് ജീവിക്കു ന്ന തെന്ന് ചെഗു വേരിയുടെ മകൾ ഡോ

നീതിപൂർണ്ണമായ ഒരു സമൂഹ സൃഷ്ടിക്ക് ഒറ്റക്കെട്ടായ പ്രവർത്തനം ആവശൃമാണെന്നും അവർ പറഞ്ഞു കണ്ണൂരിൽ ക്യൂബൻ ഐക്യദാർഢ്യ സമ്മേളനത്തിന്റെ ഭാഗ മായി സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുകയാ യിരുന്നു അവർ

പാലക്കാട് ഡിവിഷന് കീഴിലെ ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലാണ് റെയിൽവെയുടെ പ്രത്യേക സംഘം പരിശോധന നടത്തിയത് പാലക്കാട് ഡിവിഷ ണൽ മാനേജർ പ്രതാപ് സിങ്ങ് ഷമിയുടെ നിർദേശ പ്രകാരമായി രുന്നു പരിശോധന

ഉദ്ഘാടനം നിശ്ചയിച്ച ഓഫിസ് കെട്ടിടത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്